പി ദേശീയ നിർവ്വാഹക സമിതി യോഗം ഉച്ചകഴിഞ്ഞ് ഡൽഹിയിൽ തുടങ്ങും സംസ്ഥാനത്തെ പ്രളയ ബാധിത പ്രദേശങ്ങളിൽ കുടി വെള്ള ഗുണനിലവാര പരിശോധന തുടങ്ങി കേടുപാടുകൾ പറ്റിയ കറൻസി മാറ്റുന്നതിന് റിസർവ് ബാങ്ക് നിയമ ഭേദഗതി വരുത്തി കായികമേഖലയുടെ പരിപോഷണത്തിന് സംസ്ഥാന ങ്ങൾ പ്രാധാന്യം നൽകണമെന്ന് കേന്ദ്രമന്ത്രി രാജ്യ വർദ്ധൻ സിംഗ് റാത്തോഡ് ഇന്ന് അന്താരാഷ്ട്ര സാക്ഷരതാ ദിനം

ജെ പി ദേശീയ നിർവാഹകസമിതി യോഗം ഇന്ന് ഉച്ചകഴിഞ്ഞ് ന്യൂഡൽഹിയിൽ തുടങ്ങും

പെട്രോളിയം വിലവർദ്ധന ക്കെതിരെ പ്രതിപക്ഷം സംയുക്തമായി ഗവൺമെന്റിനെതിരെ രംഗത്തുവന്ന സാഹചര്യത്തിൽ നിർണ്ണായകമായ ചില തീരുമാ നങ്ങൾ യോഗത്തിൽ ഉണ്ടായേക്കുമെന്ന് ഡൽഹി റിപ്പോർട്ടു കൾ പറയുന്നു ദളിത് സമൂഹത്തിന് അനുകൂലമായ നിയമ നിർമ്മാണത്തിൽ അതൃപ്തരായ മുന്നാക്ക വിഭാഗങ്ങളുടെ വികാ രങ്ങളും യോഗം ചർച്ച ചെയ്തേക്കും സാമൂഹ്യനീതിക്കും സാമ്പത്തിക വിജയത്തിനും മോദി ഗവൺമെന്റ് നടപ്പാക്കിയ പദ്ധതികൾ യോഗം വിലയിരുത്തും വൈകിട്ട് പാർട്ടി ദേശീയ അധ്യക്ഷൻ അമിത്ഷാ യോഗം ഉദ്ഘാടനം ചെയ്യും

നാളെ വൈകീട്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സമാപന പ്രസംഗം നടത്തും ഡൽഹിയിലെ അംബേദ്കർ രാജ്യാന്തര കേന്ദ്രത്തിലാണ് യോഗം ഒരു വർഷത്തെ ഇടവേളയ്ക്കുശേഷം ചേരുന്ന യോഗം ഇപ്പോഴത്തെ സാഹചര്യങ്ങളിൽ ഏറെ ശ്രദ്ധേ യമാണെന്നാണ് രാഷ്ട്രീയ വിലയിരുത്തൽ വേണ്ടത്ര മുൻകരുതലില്ലാതെ ചരക്കുസേവന നികുതി നട പ്പിലാക്കിയത് രാജ്യത്തെ വ്യവസായ സംരംഭങ്ങളുടെ നട്ടെല്ല് തകർത്തതായി മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് പറഞ്ഞു

സാമ്പത്തിക വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്നതിൽ കേന്ദ്ര ഗവൺമെന്റ് സമ്പൂർണ്ണ പരാജയമാണെന്നും അദ്ദേഹം പറഞ്ഞു

സംസ്ഥാനത്തെ പ്രളയബാധിത്യപ്രദേശങ്ങളിൽ കുടിവെ ള്ളത്തിന്റെ ഗുണനിലവാര പരിശോധന തുടങ്ങി

ആദ്യഘട്ടത്തിൽ പൈലറ്റ് അടിസ്ഥാനത്തിൽ ആറ് ജില്ലക ളിൽ ഒരോ മുനിസിപ്പാലിറ്റിയിലെയും പഞ്ചായത്തിലെയും കിണർ വെള്ളമാണ് പരിശോധിക്കുന്നത് പ്രളയ ഭൂപടം തയ്യാറാക്കുന്നതിന് മുന്നോടിയായ പ്രാരംഭ പരിശോധന ഉടൻ തുടങ്ങും ആദ്യഘട്ടത്തിൽ ജലവിഭവ വിക സന വിനിയോഗ കേന്ദ്രത്തിന്റെ നേതൃത്വത്തിൽ പ്രളയ കാലത്തെ ജലവിതാനം അടയാളപ്പെടുത്തും

തുടർന്ന് പ്രള യസമയത്തെ ആകാശചിത്രങ്ങളുമായി താരതമ്യപ്പെടുത്തി കെടു തിയുടെ രൂക്ഷത തിട്ടപ്പെടുത്തും കേന്ദ്ര ജല കമ്മീഷനാണ് പ്രളയ ഭൂപടത്തിന്റെ മേൽനോട്ട ചുമതല മുഖ്യമന്ത്രിയുടെ ദുരിതാശ്ചാസ നിധിയിലേക്ക് തുക സമാഹരിക്കുന്നതിന്റെ ഭാഗമായി മന്ത്രി എ

ബാലന്റെ നേതൃത്വത്തിൽ ചൊവ്വാഴ്ച മുതൽ പാലക്കാട് ജില്ലയിൽ ധനസമാഹരണ യജഞം നടത്തും

ഇന്ധന വിലവർദ്ധനവിനെതിരെ മറ്റന്നാൾ നടക്കുന്ന ഹർത്താലുമായി പാർട്ടി സഹകരിക്കുമെന്ന് മുസ്ലിംലീഗ് സംസ്ഥാന് ജനറൽ സെക്രട്ടറി കെ

ക്രൂഡോയിൽ വില ഗണ്യമായി കുറഞ്ഞിട്ടും പെട്രോളിയം വില കൂട്ടുന്ന ലോകത്തെ ഒരേയൊരു രാജ്യമാണ് നമ്മുടേതെന്നും കോർപ്പറേറ്റ് കമ്പനികളുടെ ലാഭം ഇരട്ടിപ്പിക്കാൻ ജനങ്ങളെ കബളിപ്പിച്ച് ഇനിയും മുന്നോട്ടു പോകാൻ ഭരണകൂടങ്ങൾക്കാവില്ലെന്നും അദ്ദേഹം വാർത്താ ക്കുറിപ്പിൽ അറിയിച്ചു

ഭേദഗതികൾ പിൻവലിക്കണമെന്ന ഹർജികളിൽ ആറാഴ്ചക്കകം റിപ്പോർട്ട് നൽകാൻ ഡിവിഷൻ ബെഞ്ച് കേന്ദ്രത്തോട്ട് ആവശ്യപ്പെട്ടിട്ടു ണ്ട്

ബി

എസ് ബി ഡി എസ് ക്കോഴ്സുകളിലെ ശേഷി ക്കുന്ന സീറ്റുകളിൽ ഇന്നും നാളെയുമായി മോപ്അപ് കൌൺസലിംഗ് പൂർത്തിയാക്കും

തൊടുപുഴ അൽ അസർ വയനാട് ഡി എം പാലക്കാട് പി കെ ദാസ് തിരുവനന്തപുരം എസ് ആർ മെഡിക്കൽ കോള ജുകളിലെ പ്രവേശന നടപടികൾ ബുധനാഴ്ചവരെ സുപ്രീം കോടതി സ്റ്റേ ചെയ്തിട്ടുണ്ട് ലൈംഗികാരോപണം നേരിടുന്ന പി

ശശി എം

എ പൊതുപരിപാടികൾ റദ്ദാക്കി

അനാ രോഗ്യം കാരണമാണ് പരിപാടികൾ റദ്ദാക്കിയതെന്നാണ് പിശ ദീകരണം

ഇത നുസരിച്ച് കേടുപാടുകൾ വന്നതിനാൽ ബാങ്കുകൾ നിരസിച്ച നോട്ടുകൾ രാജ്യത്തുടനീളമുള്ള ആർ ബി ഐ ഓഫീസുക ളിലോ നിർദ്ദിഷ്ട ബാങ്ക് ശാഖകളിലോ മാറിയെടുക്കാനാകും ഭേദഗതി ഉടൻ പ്രാബല്യത്തിൽ വന്നേക്കും ജമ്മു കശ്മീരിലെ അനന്ത്നാഗിൽ പൊലീസ് ഔട്ട്പോസ്റ്റിന് നേരെ ആക്രമണം നടത്തിയ ലഷ്കർ ഇ തോയ്ബ ഭീകരനെ പൊലീസ് വധിച്ചു അച്ഛാബാൽ പൊലീസ് പിക്കറ്റിനുനേരെ ഇന്നലെ രാത്രിയാണ് ഭീകരർ വെടിവെയ്പ് നടത്തിയത് പൊലീസ് പിക്കറ്റിൽ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന സൈന്യത്തിന്റെ പ്രത്യാക്രമണത്തിലാണ് ഭീകരൻ മരിച്ചത്

സംസ്ഥാനത്ത് ഇന്ധനവില ഇന്ന് വീണ്ടും ഉയർന്നു

കായിക മേഖല പരിപോഷിപ്പിക്കുന്നതിന് സംസ്ഥാനങ്ങൾ പ്രാധാന്യം നൽകണമെന്ന് കേന്ദ്രമന്ത്രി രാജ്യവർദ്ധൻസിംഗ് റാത്തോഡ് പറഞ്ഞു കായികതാരങ്ങൾ അവരുടെ സേവന ങ്ങൾക്ക് അനുയോജ്യമായ പ്രതിഫലം അർഹിക്കുന്നതായും മന്ത്രി ആകാശവാണിക്ക് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞു ഇന്ന് അന്താരാഷ്ട്ര സാക്ഷരതാ ദിനം വിദ്യാഭ്യാസത്തിന്റെ പ്രാധാനൃത്തെക്കുറിച്ച് അന്താരാഷ്ട്ര സമൂഹത്തെ ഓർമ്മിപ്പി ക്കുകയും സാക്ഷരരായ സമൂഹത്തെ വാർത്തെടുക്കുകയുമാണ് ദിനാചരണത്തിന്റെ ലക്ഷ്യം

സാക്ഷരതാ ദിനാചരണത്തിന്റെ ഭാഗമായി പാലക്കാട് ജില്ലയിൽ സാക്ഷരതാ മിഷന്റെ നേതൃത്വത്തിൽ പ്രളയബാധിത പ്രദേശങ്ങളിൽ ശുചീകരണം നടത്തി

കർഷക തൊഴിലാളി ഫെഡറേഷൻ സംസ്ഥാന സമ്മേളനം കോഴിക്കോട്ട് തുടങ്ങി ടൌൺഹാളിൽ സി

ഐ സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു വൈകീട്ട് സെമിനാർ നടക്കും

ആർ

വിമാ നത്താവളത്തിൽ ഭക്ഷണ സാധനങ്ങൾക്ക് അമിതവില ഈടാ ക്കുന്നുണ്ടെന്ന പരാതിയെത്തുടർന്നാണ് നിർദ്ദേശം ജലന്ധർ ബിഷപ് ഫ്രാങ്കോ മുളയ്ക്കലിനെ തിരായ ലൈംഗിക പീഡന പരാതിയിൽ സഭയും ഗവൺമെന്റും കൈവി ട്ടെന്ന് കുറവിലങ്ങാട് മഠത്തിലെ കന്യാസ്ത്രീകൾ പറഞ്ഞു നീതിക്കായി ഏതറ്റം വരെയും പോകും നീതി നിഷേധിക്കപ്പെ ടു ന്ന തി നാലാണ് സമരത്തിന് ഇറങ്ങിയ തെന്ന് കൊച്ചി ഹൈക്കോടതി ജംഗ്ഷനിൽ പീഡനത്തിനിരയായ കന്യാസ്ത്രീ യുടെ കുടുംബാംഗങ്ങൾ നടത്തുന്ന പ്രതിഷേധ ധർണയിൽ പങ്കെടുക്കാനെത്തിയ കന്യാസ്ത്രീകൾ മാധ്യമങ്ങളോട് പറ ഞ്ഞു അഞ്ച് കന്യാസ്ത്രീകളാണ് ധർണ്ണയിൽ പങ്കെടുക്കുന്ന ത്

സമൂഹ ത്തിന്റെ വിവിധ മേഖലകളിലുള്ളവരെയും ജനപ്രതിനിധിക ളെയും ഉദ്യോഗസ്ഥരെയും പങ്കെടുപ്പിച്ച് യോഗങ്ങൾ നടന്നു വരുന്നു മന്ത്രിമാരായ ഇ പി ജയരാജൻ കെ

ശൈലജ എന്നി വർ ചൊവ്വാഴ്ച മുതൽ തെരഞ്ഞെടുക്കപ്പെട്ട കേന്ദ്രങ്ങളിലെത്തി ഫണ്ട് ഏറ്റുവാങ്ങും

രണ്ടു പേർ എലിപ്പനി ബാധിച്ചു മരിക്കുകയും ചെയ്തു എട്ട് പേർക്ക് ഡെങ്കിപ്പനി സ്ഥിരീകരിച്ചതായും ഡി എം ഒ അറിയിച്ചു

ജില്ലയിലെ ആറു താലൂക്കുകളിലായി ഇരുപതിനായിരത്തിലേറെ കിറ്റുകളാണ് വിതരണം ചെയ്തത് പ്രളയത്തിൽ വീട് നഷ്ടപ്പെട്ടവർക്ക് കെ

എം ഹസ്സൻ യോഗത്തിൽ പങ്കെടുക്കും കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ കാലാവസ്ഥ നിർണ്ണയ ഉപകരണങ്ങൾ സ്ഥാപിച്ചു കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ നേതൃത്വത്തിലാണ് ഉപകരണങ്ങൾ സ്ഥാപിച്ചത് തിങ്കളാഴ്ചയോടെ ഇവ പൂർണ്ണമായും പ്രവർത്തനസജ്ജമാ കുമെന്നാണ് കരുതുന്നത്

ആരുടെയും പരിക്ക് ഗുരുതരമല്ലെന്ന് പൊലീസ് അറിയിച്ചു പരിക്കേറ്റവർക്ക് പ്രാഥമിക ചികിത്സ നൽകി കണ്ണൂരിൽ മാതൃഭൂമി ന്യൂസ് എഡിറ്റർ വിനോദ് ചന്ദ്രനെയും ഭാര്യയെയും കെട്ടിയിട്ട് സർണ്ണവും പണവും അപ്ഹരിച്ച സംഭ വത്തിൽ പ്രത്യേക പൊലീസ് സംഘം അന്വേഷണം തുടങ്ങി ബംഗ്ലാദേശ് സ്വദേശികൾ ഉൾപ്പെട്ട സൃംഘമാണ് കവർച്ച നട ത്തിയതെന്നാണ് പൊലീസിന്റെ നിഗമനം കുട്ടനാട്ടിൽ ജലനിരപ്പ് താഴ്ന്നുതുടങ്ങി

അടുത്തമാസം പുഞ്ചകൃഷി പുനരാരംഭിക്കുമെന്നാണ് കൃഷിവകുപ്പ് അധികൃതർ അറിയിച്ചത്